ജനപങ്കാളിത്തതോടെ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തെ സി

ഐ എം മുസ്തീം ലീഗ് സ്മൂനാർത്ഥികളെ പ്രഖ്യാപിച്ചു

ജെ

സ്ഥാനാർത്ഥി നിർണയം അന്തിമഘട്ടത്തിൽ തീരദേശവാസികൾക്കായുള്ള അഭയ കേന്ദ്രങ്ങളുടെ ന് നിർമ്മാണത്തിന് സ്ക്ക്സ്ഥാന്ത്ത് തുടക്കമായി

പ്രതിജ്ഞാബദ്ധുമെന്ന് മന്ത്രി എം

നാലാം മത്സരം നാളെ ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര മുഖ്യമന്തി സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനപങ്കാളിത്ത ത്തോടെ കാലാനുസൃതമായ മാറ്റം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

നാടിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യം കലാലയങ്ങൾക്ക് ഉണ്ട്

പൊതു വിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി മൂന്നരലക്ഷത്തോളം പേരാണ് പൊതുവിദ്യാലയങ്ങളിൽ എത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കൂടുതൽ വിശദാശങ്ങളുമായി കരോൾ

ഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു

എഫിലെ നാല് എം

മാരും ആറ് സിറ്റിംഗ് എം

പ്ട്യല്ക്കുടിയിൽ ഇന്നസെന്റ് കണ്ണൂരിൽ പി

ശ്രീമതിട് ആറ്റിങ്ങലിൽ എ

രാജേഷ് ഇടുക്കിയിൽ ജോയിസ് ്റ്റ്ജോർജ്ജ് എന്നിവരാണ് മത്സരിക്കുന്ന സിറ്റിംഗ് എം

വടകരയിൽ പി ജയരാജൻ കോട്ടയത്ത് വി

വാസവൻ കൊല്ലത്ത് കെ

ബാലഗോപാൽ മലപ്പുറത്ത് വി

സാനു എറണാകുളത്ത് പി രാജീവ് കാസർഗോഡ് കെ

സതീഷ് ചന്ദ്രൻ എന്നിവരാണ് മറ്റ് സ്ഥാനാർത്ഥികൾ നാല് സീറ്റുകളിൽ സി

ഐ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നേരത്തെത്ന്നെ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയ്ക്ക് അന്തിമ രൂപമായി

സി സി ആസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി എന്നിവർ നടത്തിയ ചർച്ചയിലാണ് സാധ്യതാ പട്ടികയ്ക്ക് അന്തിമ രൂപമായത് ഡൽഹിയിൽ നടക്കുന്ന അന്തിമ ചർച്ചകൾക്കുശേഷം ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും

കുഞ്ഞാലി ക്കുട്ടി മലപ്പുറത്തും ഇ

മുഹമ്മദ് ബഷീർ പൊന്നാനിയിലും വീണ്ടും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ

സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകളും അന്തിമ ഘട്ടത്തിലാണ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹ്ട്ട് സ്ഥാനാർഥികളെ പ്രഖ്യാപിച്ച് ഇന്ന് മുതൽ കൺവെൻഷ്ടനുകൾക്ക് ഇടതു മുന്നണി തുടക്കമിടുകയാണ് മാവോവാഭിക്ൿ ഉന്നയിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളോട് സി പി ഐക്ക് അനൂകൂല നിലപാടാണ് എന്നാൽ അതിനായി ഉപയോഗിക്കുന്നു ്വഴികൾ അംഗീകരിക്കുന്നില്ലെന്നും ശ്രീ

ഇടുക്കി ലോക്സഭാ സീറ്റിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാനാണ് യോഗം ചേരുന്നത്

മണി ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഗവൺമെന്റ് പ്രതി ജ്ഞാബദ്ധമെന്ന് മന്ത്രി എം

ഇടുക്കി രൂപത കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സ്നേഹസംഗമവും ന്യൂനപക്ഷ അവകാശ സമ്മേളനവും ഇരട്ടയാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം നിയമനം അംഗീകരിക്കാത്തതുൾപ്പടെയുള്ള അധ്യാപകരുടെ പ്രശ്നങ്ങളും കെ

ആർ ഭേദഗതിയും കാരണം എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്ക് സംഭവിച്ചിരിക്കുന്ന ബുദ്ധിമുട്ടു കൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കു മെന്നും അദ്ദേഹം പറഞ്ഞു

മണി സംസ്ഥാനത്ത് ഇത്തവണ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി എം

ആവശ്യമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങി പ്രതിസ്ന്ധി പരിഹരിക്കുമെന്നും മന്ത്രി തൊടുപുഴയിൽ പറഞ്ഞു

പ്രധാന റെയിൽവേഴ് ്സ്റ്റേഷനുകൾ പ്രധാന ബസ് സ്റ്റാന്റുകൾ എന്നിവിടങ്ങ്ളിൽ ഇതിനായി ബൂത്തുകൾ ക്രമീകരിക്കും

ജലീൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം സംശയകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഭവത്തെക്കുറിച്ച് നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു

ഡി എഫ് ഭരിച്ചിരുന്നപ്പോൾ മാവോയിസ്റ്റുകളുടെ പ്രധാനികളെ തന്ത്രപരമായി പിടികൂടാൻ കഴിഞ്ഞിരുന്നു ഇപ്പോൾ പൊലീസിന് അതിന് കഴിഞ്ഞില്ലെന്നും ശ്രീ

കണ്ണൂർ മാവോയിസ്റ്റ് വയനാട്ടിൽ മാവോവാദി വെടിയേറ്റു മരിച്ചതിനെ തുടർന്ന് കണ്ണൂർ ജില്ലയിലെ അതിർത്തി മേഖലയിൽ വനപ്രദേശത്ത് പോലീസ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി ആറളം ബ്രഹ്മഗിരി വനമേഖലകളിലാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് അന്തർസംസ്ഥാന പാതകളും പോലീസ് നിരീക്ഷണത്തിലാണ്

നാളത്തെ ക്മിത്സ്രം ജയിച്ച് പരമ്പര സ്വന്തമാക്കാനാകും ഇന്ത്യ ശ്രമിക്കുക്

ഇന്ന് ഗുവാഹത്തിയിൽ നടന്ന അവസാന മത്സരത്തിൽ ഒരു റണ്ണിനാണ് ഇംഗ്ല്ങ്ടിന്റെ വിജയം

മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യയ്ക്കായി ക്യാപ്റ്റൻ സ്മൃതി മന്ദാന ് അർദ്ധസെഞ്ചറി നേടിയെങ്കിലും ആതിഥേയർക്ക് ലക്ഷ്യം നേടാനായില്ല

ഇതോടനുബന്ധിച്ച് മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കുകളിൽ തിങ്കളാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴ പ്രതിനിധി ആർ

അന്നത്തെ ഭീകരാക്രണത്തിന് തിരിച്ചടി നൽകാൻ മുൻ യുപിഎ ഗവൺമെന്റ് സൈന്യത്തിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് പ്രധാനമന്ത്രി ഓർ മ്മിപ്പിച്ചു ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻ ഗവൺമെന്റിന്റെ കാലയളവിൽ തീവ്രവാദ പോരാട്ടത്തിന് സേനക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല

പ്രശസ്ത സാഹിത്യ കാരി പ്രൊഫ

പരിപാടിയിൽ പങ്കെടുത്ത എഴുത്തുകാരികൾ തിങ്ങ്ളുടെ രചനാ അനുഭവങ്ങൾ പങ്കുവച്ചു